സ്ഥിരീകരിച്ചു ഇറ്റലിയിൽ നിന്നെത്തിയ കുട്ടിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്

ക്കുന്നവർക്കെതിരെ കർശന് നടപടിയെന്ന് മന്ത്രി കെ

വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിവേഴ്സൽ സ്ക്രീനിംഗ് സംവിധാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് പനി ഉണ്ടെന്നറിഞ്ഞത്

കുട്ടിയും അമ്മയും അച്ചനുമാണ് ഐസൊലേഷനിലുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗലക്ഷണങ്ങൾ മറയ്ക്കുന്നതിന് സ്വയം മരുന്ന് കഴിക്കുകയും ആരോഗ്യ ഉപദേശങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് തങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും അങ്ങേയറ്റം ദോഷകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അത്തരം നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനെതിരേയാണ് കർശനമായ നടപടികളെടുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി

ബാക്കിയുളള അഞ്ച് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും അതിന്റെ ഫലത്തിനായി കാത്തിരിക്കുന്നതായും പത്തനംതിട്ട ജില്ലാകലക്ടർ പി ബി നൂഹ്

ഇറാൻ ഭരണകൂടവുമായി ചർച്ചചെയ്ത് തീർത്ഥാടകരെ എത്രയും വേഗം തിരികെ എത്തിക്കുന്നതിന് വേ ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളിൽ ് ആർക്കും തന്നെ കൊറോണ ബാധ ഇല്ലെന്ന് ശ്രീ ജയ്ശ്ങ്കർ പറഞ്ഞു

കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവ കുമാർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ജമ്മുവിലും ഉത്തർപ്രദേശിലും ന്യൂഡൽഹിയിലും പുതുതായി ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു

ജമ്മുനഗരത്തിലെ സത്വാരി സർവാൾ പ്രദേശങ്ങളിലുളളവരാണ് നിരീക്ഷണത്തിലുളളത്

ബി

റാണാ കപൂറിന്റെ മുംബൈയിലെ വസതി ഓഫീസ് എന്നിവ ഉൾപ്പെടെ ഏഴിടങ്ങളിൽ സി ബി ഐ ഇന്ന് റെയ്ഡ് നടത്തി റാണാകപൂറിന്റെ ഉടമസ്ഥയിലുള്ള ഡി

എൽ എന്ന കമ്പനിയുടെ പേരിൽ അനധികൃത സാമ്പത്തിക സഹായം കപൂറിനും കുടുംബത്തിനും ലഭിച്ചുവെതാണ് സി ബി

പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനക്കിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് പ്രദേശത്ത് സൈന്യത്തിന്റെ ശക്തമായി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള രണ്ട് കോടിയിലധികം സ്ത്രീകൾക്ക് വിവിധ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര ന്യൂനപക്ഷകാരൃ മന്ത്രാലയം

അന്താർ ീഷ്ട്ര വനിതാ ദിനത്തോടനുബർക്കൂച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ ്സുദ്ധ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതോടെ ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യമായി ഇറ്റലി മാറി